പതിനേഴാമത് ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി വോട്ടെണ്ണൽ വ്യാഴാഴ്ച

പശ്ചിമ ബംഗാളിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് പുരോഗ്യമിക്കുന്നു

വിദേശ സന്ദർശനം ഗുണകരമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

നാല് ദിവസം നീളുന്ന ഇന്ത്യ സിംഗപ്പൂർ നാവിക അഭ്യാസം ദക്ഷിണ ചൈന കടലിൽ ആരംഭിച്ചു

ഇന്ത്യ ഓപ്പൺ അന്താരാഷ്ട്ര ബോക്സിംഗ് ടൂർണമെന്റിന് അസമിൽ തുടക്കം

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീവിജയ വോയ്സ് ചില സ്ഥലങ്ങളിലെ അക്രമ സംഭവങ്ങൾ ഒഴിച്ച് നിർത്തിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നുവെന്ന് ഉപതെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉമേഷ് സിൻഹ ഇന്നലെ ന്യൂഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് പശ്ചിമബംഗാളിലാണ്

ബീഹാറിലാണ് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്

തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും നാല് സീറ്റുകളിൽ വീതവും കർണാടകയിൽ രണ്ടും ഗോവയിൽ ഒരു സീറ്റിലും ഇന്നലെ റീ പോളിംഗ് നടന്നു

കള്ളവോട്ട് നടന്നെന്ന കണ്ടെത്തലിനെ തുടർന്ന് കേരളത്തിലെ കണ്ണൂർ കാസർകോഡ് മണ്ഡലങ്ങളിലെ ഏഴ് ബൂത്തുകളിലും ഇന്നലെ റീ പോളിംഗ് നടന്നു വ്യാഴാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ആകാശവാണിയുടെ വാർത്താ വിഭാഗം വോട്ടെണ്ണൽ ദിവസം ഫലപ്രഖ്യാപനം കൃത്യമായി ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്

ജെ

യുടെ നേതൃത്വത്തിലുള്ള എൻ

എ ഗവൺമെന്റ് തിരിച്ചുവരുമെന്ന് എക്സിറ്റ് പോൾ പ്രവചനം

എ

എന്നാൽ ചില വാർത്ത ചാനലുകൾ എൻ

ഇതിനേക്കാൾ മൂന്നിരട്ടിയാണ് ഇത്തവണ കണ്ടുകെട്ടിയതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡി

നാലര ലക്ഷം വോട്ടർമാരാണ് ഇന്ന് വിധി എഴുതുന്നത് കോൺഗ്രസ് എംഎൽഎ മാർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതോടെയാണ് ഈ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അതിനിടെ ഇന്നലെ ബാത്പാരയിൽ വോട്ടെടുപ്പിനിടയിലുണ്ടായ സംഘർഷങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് ബാരക്പൂർ സീൽദാ നൈഹാത്തി സെക്ഷനുകളിൽ ട്രെയിൻ സർവ്വീസുകൾ തടസ്സപ്പെട്ടു

ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മാഗ്നർ ഗ്രാമത്തിനടുത്ത് ബെർസൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് സുരക്ഷാ സേന വൃത്തങ്ങൾ അറിയിച്ചു ഇവരിൽ ഒരാളിൽ നിന്നും പണവും പിടിച്ചെടുത്തിട്ടുണ്ട് ഇന്നലെ ഈ പ്രദേശത്ത് നിന്നും മാവോയിസ്റ്റ് അനുകൂല ബാനറുകളും പോസ്റ്ററുകളും പിടിച്ചെടുത്തിരുന്നു

ഏറെ നാളായി ബിജെപി നേതൃത്വത്തിലുള്ള എൻഡിഎ യുടെ നിലപാടുകൾക്കും സഖ്യ ധാരണകൾക്കും വിരുദ്ധമായി പെരുമാറിയതിനാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയത്

രാജ്ഭർ തന്റെ പാർട്ടി ചിഹ്നത്തിൽ നിരവധി സീറ്റുകളിൽ ഇത്തവണത്തെ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് ഗവർണർ അംഗീകാരം നൽകിയിട്ടുണ്ട് പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി വിദേശ സന്ദർശനം സംസ്ഥാനത്തിന് ഗുണകരമെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയം തടയാനും പ്രളയാനന്തര പുനർനിർമാണത്തിനും നെതർലന്റ്സ് മികച്ച മാതൃകയെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പ്രളയ പുനർനിർമാണവുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉടനെ യോഗം വിളിക്കും

കൃഷി വനപരിപാലനം പരിസ്ഥിത്രി സൌഹൃദ ടൂറിസം തുടങ്ങിയ പദ്ധതികൾ സംബന്ധിച്ച് വിവിധ്യ ചർച്ചകൾ സന്ദർശനത്തിനിടെ നടത്തിയതായി ശ്രീ

ജല കാർഷിക സമുദ്രജല് സർരംഭങ്ങളിൽ ഡച്ച് കമ്പനികളുടെ സഹായത്തോടെ വൻ കൂതിച്ചുചാട്ടമാണ് കേരളം ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

ഇന്ത്യൻ നാവിക സേനയുടെ കപ്പലുകളായ ഐ

എസ് കൊൽക്കത്തയും ശക്തിയും അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നതായി നാവിക സേന ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു

സിംഗപ്പൂരിനെ പ്രതിനിധീകരിക്കുന്നത് ആർ

ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള തീരദേശ സൈനിക സുരക്ഷ പങ്കാളിത്തത്തിന്റെ ഭാഗമായാണ് ദക്ഷിണ ചൈന കടലിൽ നാവിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത്

മന്ത്രാലയത്തിലെ ദൈനംദിന പ്രവൃത്തികളും തർക്ക പരിഹാരങ്ങളും വേഗത്തിൽ ചെയ്തു തീർക്കുന്നതിനാണ് നിർമിത ബുദ്ധി സംവിധാനം പോർട്ടലിൽ ഉപയോഗിക്കുന്നത്

ലോകത്താകമാനം ന്യായവും ശാസ്ത്രീയവുമായി അ്ളവുതൂക്ക സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കൺവെൻഷൻ നടന്നത് ജനങ്ങളുടെ ജീവിത നില്പ്പാർം വർദ്ധിപ്പിക്കുന്നതിനും ആഗോള സമത്വം ഉറപ്പാക്കുന്നതിനു് അന്താരാഷ്ട്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു കൺവെൻഷൻ അടിസ്ഥാനപരമായ അന്താരാഷ്ട്ര യൂണിറ്റ് സംവിധാനങ്ങൾ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം

സ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് ട്ടിറ്ററിലാണ് ഇറാന് ശക്തമായ മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയത് അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഇറാന് തക്ക മറുപടി നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് അറിയിച്ചു